പ്രവാസി ഭാരതീയ ദിവസിന് ഇന്ന് സ്ഥമാപനം സമാപന സമ്മേളനം വൈകിട്ട് രാഷ്ട്രപതി രാംനാഥ് ക്ടോവിന്ദ് ഉദ്ഘാടനം ചെയ്യും

ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടത്താൻ കഴിയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാങ്കേതിക വിദഗ്ദ്ധ സമിതി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവീന്ദ് ജഗ്നാഥുമായി നടന്ന ചർച്ചയിലാണ് തീരുമാനം വാരാണസിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഇരു നേതാക്കളും ചർച്ച നടത്തിയത് ധനകാരൃ പങ്കാളിത്ത കരാറിനും ചർച്ചയിൽ അന്തിമ രൂപം നൽകിയതായി വിദേശകാരൃ മന്ത്രാലയം അറിയിച്ചു ഇരു രാജൃങ്ങളും ധാരണയായിട്ടുള്ള പദ്ധതികളുടെ നിലവിലെ പുരോഗതിയും ഇരു ഭരണാധികാരികളും വിലയിരുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി തുടരാൻ കഴിയുന്നതിലും പ്രധാനമന്ത്രി സംതൃക്ട്തി രേഖപ്പെടുത്തി

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ മൌറീഷ്യസ് പ്രധാനുമന്ത്രീട്സന്ദർശിക്കും

സമാപന സമ്മേളനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും പ്രവാസി ഭാരതീയ പുരസ്കാരം രാഷ്ട്രപതി സമ്മാനിക്കും പ്രവാസി ഭാരതീയ ദിവസിന്റെ ഔപചാരിക ഉദ്ഘാടനം രണ്ടാം ദിവസമായ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നിർവഹിച്ചത്

രാജ്യത്തിന്റെ വികസനത്തിനുവേണ്ടി പ്രവർത്തിക്കുമ്പോഴും പ്രതിരോധനിർമ്മാണ മേഖലകളിൽ സംരംഭകരാകാൻ വിദേശ ഇന്ത്യൻ പൌരന്മാർക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ച്ചിതറിക്കിടക്കുന്ന പ്രവാസികളെ ഒരു കൂടക്കീഴിൽ കൊണ്ടുവരുന്നതിരും സ്വന്തം നാട്ടിലെ നിക്ഷേപ സാധ്യതകൾ അറിയിക്കുന്നതിനുമാണ് പ്രിക്ടാസി ഭാരതീയ ദിവസ് സംഘടിപ്പിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നീസ്സ് ഇന്ത്യയിലേക്ക് മഹാത്മാഗാന്ധി മടങ്ങി വന്നതിന്റെ ഓർമ പുതുക്കി എ

വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് തുടക്കമിട്ടത്

ഉത്തർപ്രദേശിലെ ആഗ്രയിലും മഥുരയിലുമാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്

രക്തസമ്മർദം അളക്കുന്ന ഉപകരണം സി

എം ആർ ഐ സ്കാനിങ് മെഷിനുകൾ കൃത്രിമ അസ്ഥിഘടകങ്ങൾ തുടങ്ങി ഇതുവരെ വിലനിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടാത്ത ഉപകരണങ്ങൾക്കാണ് വില കുറയ്ക്കുക അവശ്യമരുന്നുകളെ നിർബന്ധമായും വിലനിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന രീതിയും അവസാനിപ്പിച്ചു കഴിഞ്ഞദിവസം രൂപീകരിച്ച നീതി ആയോഗിനുകീഴിലുള്ള സമിതിക്കാണ് ഇനിമുതൽ മരുന്നുകളുടെ വില നിയന്ത്രിക്കാനുള്ള അധികാരം

ഇലക്ട്രോണിക് വോട്ടിംഗ്ല്ട് മെഷീനുകളിലെ വിവരങ്ങൾ മറ്റ് വയർലെസ് സംവിധാനങ്ങൾക്കോ രേ്ഡിയോ തരംഗങ്ങൾക്കോ പിടിച്ചെടുക്കാൻ കഴിയില്ലെന്ന് സാങ്കേതിക വിദഗ്ദ്ധർ വൃക്തമാക്കി വോട്ടിംഗ് മെഷീനുകളെ എല്ലാ തരത്തിലുമുള്ള പരിശോധനകൾക്കും വിധേയമാക്കിയതിനു ശേഷമാണ് തിരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിക്കുന്നതെന്ന് കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡുമാണ് രാജ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും വി വി

നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇവ കർശനമായ പരിശോധനകൾക്ക് വിധേയമാക്കുമെന്ന് ഈ സ്ഥാപനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്

പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നേതാജി അനുസ്മരണ സമ്മേളനവും ഇന്ന് നടക്കും ഡൽഹിയിലെ റെഡ്ഫോർട്ടിൽ സുഭാഷ് ചന്ദ്രബോസ് മ്യൂസിയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും നേതാജി ഐ

എ സേവന കാലത്ത് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കും

കഴിഞ്ഞവർഷം നവംബറിലാണ് ഇന്ത്യൻ തീർത്ഥാടകർക്ക് കർത്താർപൂർ സാഹിബ് ഗുരുദാര സന്ദർശിക്കുന്നതിനായി അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇടനാഴി നിർമ്മിക്കുന്നതിനുള്ള ശുപാർശയ്ക്ക് ഇന്ത്യ അംഗീകാരം നൽകിയത്

റിപ്പബ്ലിക് ദിന പരേഡിന്റെ സമ്പൂർണ്ണ റിഹേഴ്സൽ ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കും കൂടുതൽ വിവരങ്ങളുമായി സീന ആൻ്റണി

പരേഡിന്റെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ ട്രാഫിക് സംവിധാനങ്ങളാണ് ഡൽഹി പോലീസ് ഒരുക്കിയത്

ഇക്കുറി പരേഡിൽ അണിനിരക്കുന്ന വ്യോമസേനാ സംഘത്തിൽ മലയാളത്തിന്റെ അഭിമാനമായി രാഗി രാമചന്ദ്രൻ രാജ്പഥിൽ ചുവടുവയ്ക്കും

മലയാളിയായ സ്കാഡ്രൺ ലീഡർ കെവിൻ ടി

ജൈവ ഇന്ധനം നിറച്ച വ്യോമസേനാ വിമാനത്തിന്റെ അഭ്യാസപ്രകടനവും ഇത്തവണത്തെ പ്രത്യേകതയാണ് സുഖോയ് എംകെഐ യുദ്ധവിമാനം ആകാശ് മിസൈൽ അത്യാധുനിക റഡാറായ ആശ്ലേഷ എന്നിവ പരേഡിൽ സാന്നിധ്യമറിയിക്കും റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിക്കാൻ സംസ്ഥാനവും തയ്യാറെടുക്കുകയാണ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ശനിയാഴ്ച രാവിലെ ഗവർണ്ണർ പി സദാശിവം ദേശീയ പതാക ഉയർത്തും തുടർന്ന് വിവിധ സേനാവിഭാഗങ്ങളുടെ പരേഡിനെ അദ്ദേഹം അഭിവാദ്യം ചെയ്യും

റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമാണ് അഞ്ച് ദിവസത്തെ പരിപാടിയെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു

അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമായ വാഘർ എന്ന കൃതിക്കാണ് പുരസ്ക്കാരം ലഭിച്ചത്

ബിർലാ ഫൌണ്ടേഷൻ നൽകുന്ന പുരസ്ക്കാരം രാജ്യത്ത് സാഹിത്യലോകത്തെ ഏറ്റവും ഉന്നതമായ സമ്മാനങ്ങളിലൊന്നാണ്

ബാലശക്തി പുരസ്കാർ ബാല കല്യാൺ പുരസ്കാർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് സമ്മാനങ്ങൾ നൽകിയത്

ഡി

ആശ്രാമത്തെ ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ വൈകിട്ട് അഞ്ചിന് ഗവർണർ ജസ്റ്റിസ് പി

ഉദ്ഘാടനച്ചടങ്ങിനു ശേഷം നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ കേരളം തെലങ്കാനയെ നേരിടും

ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാൻ പട്ടികജാതി വികസന ഓഫീസർ ഒരു വർഷത്തെ പ്രവർത്തന് റിപ്പോർട്ട് അവതരിപ്പിച്ചു

യുവജനങ്ങൾക്ക് അവരുടെ അഭിരുചിയ്ക്ക് അനുസരിച്ചുള്ള തൊഴിൽ മേഖല രൂപപ്പെടുത്താൻ സഹായിക്കുന്നതാണ് മാതൃകാ തൊഴിൽ കേന്ദ്രങ്ങൾ